വൈദ്യുതി വാർത്താ വിനിമയം കുടിവെള്ളം എന്നിവയടക്കം അവശ്യ സേവനങ്ങൾ തടസ്സപ്പെട്ടാൽ അവ അടിയന്തരമായി പുനസ്ഥാപിക്കണം കോവിഡ് ചികിത്സ നടക്കുന്ന ആശുപത്രികളിൽ ചുഴലിക്കാറ്റ് മൂലം ചികിത്സയോ ഓക്സിജൻ ലഭ്യതയോ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വൈകീട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടു വാക്സിനേഷൻ പ്രവർത്തനങ്ങളും മരുന്നുകൾ സൂക്ഷിക്കുന്ന ശീതീകരണ സംവിധാനവും ഒരുകാരണവശാലും മുടങ്ങാൻ പാടില്ല ഓക്സിജൻ ടാങ്കറുകളുടെ ഗതാഗതത്തിനും തടസ്സമുണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ദേദ ടൌട്ടേ ചുഴലിക്കാറ്റ് ജാഗ്രതാ നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിരീക്ഷിച്ചുവരികയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്

നാവികസേനയും തീരദേശ സേനയും കപ്പലുകളും ബോട്ടുകളും ഹെലികോപ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് മെഡിക്കൽ സംഘങ്ങളും ഇവർക്കൊപ്പമുണ്ട് വൈദ്യുതി വാർത്താ വിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെടാതിരിക്കാനും പുനസ്ഥാപിക്കാനുമായി പ്രത്യേക സംഘങ്ങളെ ഏർപ്പെടുത്തിക്കഴിഞ്ഞു ദേദ അറബിക്കടലിൽ രൂപപ്പെട്ട ടൌട്ടേ ചുഴലിക്കാറ്റ് പുലർച്ചെ രണ്ടരയോടെ അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

നാളെ വൈകീട്ടോടെ ഗുജറാത്തിന് സമീപമെത്തുന്ന ടൌട്ടേ ചൊവ്വാഴ്ച പുലർച്ചെയോടെ പോർബന്തറിനും നാലിയാക്കുമിടയിലൂടെ തീരം കടക്കുമെന്നാണ് വിലയിരുത്തൽ പടിഞ്ഞാറൻ തീരമേഖലയാകെ കനത്ത ജാഗ്രതയിലാണ്

കടൽ പൊതുവെ പ്രക്ഷുബ്ധമായി തുടരും തിങ്കളാഴ്ച വരെ അഞ്ച് മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായേക്കും ദേദ സംസ്ഥാനത്ത് ടൌട്ടേ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ഉണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി രണ്ട് ദിവസത്തെ പ്രകൃതിക്ഷോഭങ്ങളിലായി രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എറണാകുളത്തും കോഴിക്കോട്ടും ഓരോരുത്തർ മുങ്ങിമരിക്കുകയായിരുന്നു

ദേദ പത്തനംതിട്ട ജില്ലയിലെ കോന്നി കോഴഞ്ചേരി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

മരം വീണ് നിരവധി വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റി

ജില്ലയിൽ പലയിടത്തും മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് ഒട്ടേറെ വീടുകൾക്ക് നാശം നേരിട്ടു ദ്ദേ തൃശൂരിന്റെ തീരമേഖലയിൽ കടൽക്ഷോഭം ശക്തമായതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

ക്വാറന്റീനിൽ കഴിയുന്നവർക്കായി പ്രത്യേക ക്യാമ്പുകളും തുറന്നു ആന്റിജൻ ടെസ്റ്റ് നടത്തിയാണ് ഇവരെ ക്യാമ്പിൽ പ്രവേശിപ്പിക്കുന്നത്

കുട്ടനാട് കാർത്തികപ്പള്ളി ചേർത്തല താലൂക്കുകളിലാണ് കനത്ത നാശനഷ്ടം ദ്ദേ കണ്ണൂർ ജില്ലയിൽ കാറ്റിലും മഴയിലും തകർന്ന വീടുകളുടെ എണ്ണം ഇരുപതിലേറെയാണ്

ദേദ കോഴിക്കോട് ജില്ലയിൽ കടൽക്ഷോഭത്തിലും കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആറ് ക്യാമ്പുകളിലായി നൂറിലേറെ പേരെ മാറ്റിത്താമസിപ്പിച്ചു വടകരയിൽ കടൽക്ഷോഭ മേഖലയിൽ നിന്ന് നിരവധിപേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി ചോമ്പാൽ ഹാർബറിൽ നാല് വള്ളങ്ങൾ കടലിലേക്ക് ഒഴുകി കാണാതായി ബേപ്പൂരിൽ കടൽക്ഷോഭത്തിൽ വീടിന്റെ മതിലിടിഞ്ഞ് പതിനഞ്ചോളം പേർക്ക് പരുക്കേറ്റു പന്നിയങ്കരയിലും കോയവളപ്പിലുമായി പതിനഞ്ചോളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി ജില്ലയിലെ നാല് താലൂക്കുകളിലും കൺട്രോൾ റൂം തുറന്നു

പിമാരായ കെ മുരളീധരൻ എം കെ രാഘവൻ ജില്ലാ കല്കടർ ബി

പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ തുടങ്ങിയവർ കടൽക്ഷോഭമുണ്ടായ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ദ്ദേ ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക കൃഷി നാശം

ദ്ദേ ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ആറ് ഷട്ടറുകളും രാവിലെ തുറന്നു വ്യഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറിന് ഇരുവശവും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

ഒരു വീട് പൂർണ്ണമായി തകർന്നു ജില്ലയിൽ ഇപ്പോൾ അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു

കോവിഡ് വ്യാപനം കൂടിയ തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് അധിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്

വിശദാംശങ്ങളുമായി നിഷിതകുമാരി ദര രോഗവ്യാപനം പിടിച്ചുനിർത്താൻ ഏറ്റവും കർശനമായ മാർഗമാണ് ട്രിപ്പിൾ ലോക്ഡൌണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാല് ജില്ലകളുടെയും അതിർത്തികൾ അടയ്ക്കും അവശ്യ സേവന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കിയാൽ പ്രവേശനം അനുവദിക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അകത്തേക്കും പുറത്തേക്കും യാത്രക്കായി ഒരു റോഡ് മാത്രമേ തുറന്നുവെയ്ക്കൂ

ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കുന്ന പ്രദേശങ്ങളെ സോണുകളായി തിരിച്ച് നിയന്ത്രണം ഉയർന്ന പൊലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും

രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഭക്ഷണമെത്തിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചനുകളും ജനകീയ ഹോട്ടലുകളും പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതിൽകവിഞ്ഞ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കിയ ഇടങ്ങളിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

മരുന്നുകടകളും പെട്രോൾ പമ്പുകളും തുറക്കും ബേക്കറി പലവ്യഞ്ജന കടകൾ എന്നിവ ഒന്നരാടൻ ദിവസങ്ങളിലേ തുറക്കാവൂ

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതർ

ദര കോവിഡ് വർദ്ധനയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ നാല് തദ്ദേശ സ്ഥാപനങ്ങളെ അതീവ ഗുരുതര മേഖലകളായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു

ഇവയുടെ അതിർത്തികൾ പൊലീസ് സീൽ ചെയ്യും

ഗുരുതര രോഗങ്ങൾ നേരിടുന്നവർക്കായിരിക്കും വാക്സിൻ നൽകുന്നതിൽ മുൻഗണന

ഇതിൽ ഉൾപ്പെടുന്നവർ രജിസ്ട്രേഷന് ശേഷം വാക്സിൻ അനുവദിക്കുന്ന മുറയ്ക്ക് കുത്തിവെപ്പെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം റോഡ് മാർഗ്ഗമാണ് വീട്ടിലെത്തിച്ചത്